പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

ചെന്നൈയിലും പരിസരപ്രദേശത്തും ശക്തമായ മഴ

സ്ഥിരീകരിച്ചു

ഗോവയും തമ്മിൽ പോരാട്ടം

ലോകമൊട്ടാകെയുള്ള ജനാധിപത്യ സ്ഥാപനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇങ്ങനെയൊരു യോഗം നടക്കുന്നതെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി നിയമനിർമ്മാണസഭയും നീതിന്യായവും ഭരണനിർവഹണവും യോജിപ്പോടെ പ്രവർത്തിക്കുന്നതാണ് ശക്തമായ ജനാധിപതൃത്തിലേക്കുള്ള മാർഗ്ഗമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പറഞ്ഞു

കണ്ടെയ്ൻമെന്റ് സോണ്ടിയി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യ്മായി പാലിക്കുന്നെന്ന് ജില്ലാതല ഭരണകൂടങ്ങൾ പോലീസ് മുൻസിപ്പൽ അധികാരികൾ എന്നിവർ ഉറപ്പാക്കണമെന്ന് പുതിയ മാർഗ്ഗനിർദ്ദേശം പറയുന്നു

ശൈലജ അറിയിച്ചു

പുതുക്കിയ മാർഗനിർദേശങ്ങളനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ഐസൊലേഷൻ വാർഡിലും മോർച്ചറിയിലും സംസ്കാര സ്ഥലത്തു വച്ചും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മൃതദേഹം കാണാവുന്നതാണ്

ഇതിനായി തൃപ്ർണ്ണർ ആരിഫ് മുഹമ്മദ് ഖാന് സർക്കാർ അപേക്ഷ നൽകി

ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ പൊതുഗതാഗത സംവിധാനം നിർത്തിവെച്ചതായി തമിഴ്നാട് സർക്കാർ അറിയിച്ചു

രക്ഷാപ്രവർത്ത്നത്തിനായി ദേശീയ ദുരന്തനിവാരണ സേനാംഗങ്ങളെ സ്ഥലത്ത്പ്രിന്യ്സിച്ചിട്ടുണ്ട്

മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉപമുഖ്യമന്ത്രിമാരായ തർകിഷോർ പ്രസാദ് രേണു ദേവി എന്നിവർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു

ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും

ആകാശവാണിയുടെയും ദൂരദർശന്റെയും യൂട്യൂബ് ചാനലുകളിലും പരിപാടി ലഭ്യമാണ്

ജൂലൈയിൽ പദവി ഒഴിഞ്ഞ ശശാങ്ക് മനോഹറിന് ശേഷം ഇടക്കാല അധ്യക്ഷനായി ചുമതല വഹിച്ചത് ഇമ്രാൻ ഖവാജ ആയിരുന്നു

ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സി ജംഷഡ്പൂറിനെ തോൽപ്പിച്ചു